സംസ്ഥാനത്ത് നാല് ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കേരളത്തിലെ തനത് നാടൻ പശുക്കളെ കർഷകർക്ക് ലഭ്യമാക്കുന്ന കിടാരി പാർക്ക് പദ്ധതി നാലിടത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി കെ

കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരളാ ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരം സമ നിലയിൽ പിരിഞ്ഞു ദേശീയ സീനിയർ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് കണ്ണൂരിൽ തുടങ്ങും

എയർടെൽ വോഡഫോൺ ഐഡിയ റിലയൻസ് ജിയോ കമ്പനികൾ നിരക്ക് ഉയർത്തുമെന്ന് അറിയിച്ചിട്ടു ണ്ട് പ്രീ പെയ്ഡ് സേവനങ്ങൾക്കായിരിക്കും പ്രധാന മായും നിരക്ക് കൂട്ടുന്നത് വോഡഫോൺ ഐഡിയ എയർടെൽ നിരക്കുകൾ നാളെ മുതലും ജിയോ ഈ മാസം ആറുമുതലും പുതിയ നിരക്കിലേക്ക് മാറും

എസ് എൻ എൽ നിരക്ക് വർദ്ധന പ്രഖ്യാപിച്ചിട്ടി ല്ലെങ്കിലും വൈകാതെ അവരും പുതിയ നിരക്കിലേക്ക് മാറുമെന്നാണ് റിപ്പോർട്ട്

ചെന്നൈ അടക്കം തീരമേഖലകളിൽ ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മഴയുമായി ബന്ധപ്പെട്ട അപ കടങ്ങളിൽ അഞ്ചുപേർ മരിച്ചതായാണ് റിപ്പോർട്ട്

അടിയന്തര സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉന്നത ഉദ്യോഗസ്ഥരുമായി രാവിലെ ചർച്ച നടത്തും

ചെന്നൈ യിലെ പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാ ണ് ട്രെയിൻ ഗതാഗത്തെയും മഴ ബാധിച്ചു അറബിക്കടലിനോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെത്തുടർന്ന് കേര ളത്തിലെ നാല് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാവകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് മലപ്പുറം ഇടുക്കി എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ഒകേരള കർണ്ണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽനിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോക രുതെന്നും നിർദ്ദേശമുണ്ട്

ജില്ലയിലെ കക്ഷി നേതാക്കളെ യാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഇൌ ആവശ്യം ഉന്നയിച്ച് റോഷി അഗസ്റ്റിൻ എം എൽ

സർവ്വകക്ഷി യോഗത്തെപ്പറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽനിന്ന് രേഖാ മൂലം അറിയിപ്പ് ലഭിച്ചാൽ നിരാഹാരം അവസാനിപ്പിക്കു

കേരളത്തിലെ തനത് നാടൻ പശുക്കളെ കർഷകർക്ക് ലഭ്യ മാക്കാൻ മൃഗസംരക്ഷണവകുപ്പ് ആവിഷ്കരിച്ച കിടാരി പാർക്ക് പദ്ധതി സംസ്ഥാനത്ത് നാലിടത്ത് ആരംഭിക്കുമെന്ന് മന്ത്രി കെ രാജു അറിയിച്ചു മലബാർ മേഖലാ ക്ഷീര യൂണി യന് കീഴിൽ വിവിധ കർഷക സഹായ പൃദ്ധതികൾ നടപ്പാ ക്കുമെന്നും അദ്ദേഹം പാലക്കാട് വടക്കഞ്ചേരിയിൽ പറ ഞ്ഞു ജില്ലാതല ക്ഷീര കർഷക സംഗമ സമാപനം ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി

തിരുവനന്തപുരത്ത് അഭിഭാഷകർ മജിസ്ട്രേറ്റിനെ ഭീഷ ണിപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലും ബാർ അസോ സിയേഷൻ ജില്ലാ ഘടകം ഹൈക്കോടതി വിധിക്കെതിരെ പ്രമേയം പാസ്സാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലും പരിഹാരം കാണാൻ ബാർ കൌൺസിൽ പ്രതിനിധികൾ രാവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടി ക്കാഴ്ച നടത്തും വാഹനാപകട കേസുകളിൽ നഷ്ടപ രിഹാരത്തുക കക്ഷികളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശ ത്തിനെതിരെയാണ് അസോസിയേഷൻ പ്രമേയം പാസ്സാ ക്കിയത് അദാലത്തുകളിൽനിന്ന് വിട്ടുന്നിൽക്കാനും അസോസിയേഷൻ തീരുമാനിച്ചിരുന്നു

എസ് ശ്രീധരൻപിള്ള ആലപ്പുഴയിൽ അഭിപ്രായപ്പെട്ടു ചെട്ടി ക്കുളങ്ങര ദേവീക്ഷേത്രത്തിൽ മഹാഭാരതം തത്വസ മീക്ഷ രാജ്യാന്തര സാംസ്കാരിക ഉത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീധരൻപിള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കൊല്ലം ചവറ കേരള മെറ്റൽസ് ആന്റ് മിനറൽസിന്റെ ഖനനാ മുതി റദ്ദാക്കിയതിനെപ്പറ്റി സമഗ്ര അന്വേഷണം നട ത്തണമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെ ട്ടു സ്വകാര്യ കമ്പനികളിൽനിന്ന് അസംസ്കൃത സാധന ങ്ങൾ വാങ്ങി അഴിമതി നടത്താനാണ് ഈ നീക്കമെന്ന് പ്രേമചന്ദ്രൻ ആരോപിച്ചു

ഹജ്ജ് തീർത്ഥാടന നടപടികൾ മുഴുവൻ ഡിജിറ്റലാ ക്കിയ ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്ന്കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി അറിയിച്ചു അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ജിദ്ദയിൽ ഉഭയ കക്ഷി കരാർ ഒപ്പിട്ടശേഷമാണ് അദ്ദേഹം ഇക്കാര്യം അറി യിച്ചത് മെക്ക മദീന എന്നിവിടങ്ങളിലെ താമസം ഗതാഗത സൌകരൃങ്ങൾ എന്നിവ ഇന്തൃയിൽ തന്നെ ഓൺലൈ നായി ബുക്ക് ചെയ്യാനാവും

ജൂൺ നാലിന് ഫലം പ്രഖ്യാപിക്കും ഇത് സംബന്ധിച്ച വിശദമായ വിജ്ഞാ പനം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ് കൊച്ചിയിൽ ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ മത്സരം സമനില യിൽ പിരിഞ്ഞു ഇരുടീമുകളും രണ്ട് ഗോൾ വീതം നേടി

ഇഞ്ചുറി ടൈമിലാണ് കേരളാ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം ഗോൾ വഴങ്ങിയത് ഐ ലീഗ് ഫുട്ബോളിൽ ചെന്നൈ സിറ്റിക്കും ചർച്ചിൽ ബ്രദേഴ്സിനും ജയം ചെന്നൈയിൽ നിലവിൽ ചാമ്പ്യന്മാരായ ചെന്നൈ ടാവു എഫ് സിയെ മറുപടി യില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത് മറ്റൊരു മത്സരത്തിൽ ചർച്ചിൽ ബ്രദേഴ്സ് മറുപടി യില്ലാത്ത മൂന്ന് ഗോളിന് പഞ്ചാബ് എഫ് സിയെ പരാ ജയപ്പെടുത്തി ഇന്നും നാളെയും കളിയില്ല മറ്റന്നാൾ ഈസ്റ്റ് ബംഗാൾ റിയൽ കശ്മീരിനെ നേരിടും

മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചാമ്പൃൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യും

ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലി ലെത്തിയത് ഇന്ത്യൻ വനിതാ ടീം മാലദ്വീപിനെ തോൽപ്പിച്ച് നേര ത്തെതന്നെ ഫൈനലിൽ എത്തിയിരുന്നു നേപ്പാളിനെതി രെയാണ് ഇന്ത്യ ഫൈനലിൽ കളിക്കുന്നത് കാഴ്ചാ പരിമിതരുടെ ഇന്ത്യ നേപ്പാൾ ദ്വിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ പങ്കെടുക്കുന്നു ഇന്ത്യൻ ടീമിലേക്ക് കേരളാ താരം ബി വിഷ്ണുവിനെ തെരഞ്ഞെടുത്തു കാൺപൂരിലും ഡെറാഡൂണിലുമായി മൂന്ന് ഏകദിന മത്സ രങ്ങളും മൂന്ന് ടി ട്വന്റി മത്സരങ്ങളും പരമ്പരയിലുണ്ട് ശബരിമല തീർത്ഥാടനകാലത്തോടനുബന്ധിച്ച് വ്യവ സായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടി പ്പിക്കുന്ന ശബരിമേള കുറ്റിപ്പുറം മിനി പമ്പയിൽ ആരം ഭിച്ചു മന്ത്രി ഡോ

സംസ്ഥാനത്ത് നാലിടങ്ങളിലെ ശബരിമേളയിൽ ഏറ്റവും മികച്ച ഇടത്താവളം മിനി പമ്പയിലാണെന്നും മായമില്ലാ ത്തതും കലർപ്പില്ലാത്തതുമായ മികച്ച ഉല്പന്നങ്ങളാണ് ലഭിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു

കുട്ടികളുടെ ദേശീയ ശാസ്ത്ര കോൺഗ്രസ് നാളെ തിരുവനന്തപുരം പാലോട് നെഹ്റു ട്രോപിക്കൽ ബൊട്ടാ ണിക്കൽ ഗാർഡനിൽ ആരംഭിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും

അനധികൃതമായി ക്ടത്താൻ ശ്രമിച്ച സ്വർണ്ണ മിശ്രിതവും സ്വർണ്ണവുമാണ് മസ്ക്കറ്റിൽനിന്നെ ത്തിയ മൂന്ന് യാത്രക്കാരിൽനിന്ന് എയർ കസ്റ്റംസ് ഇന്റ ലിജൻസ് വിഭാഗം പിടിച്ചെടുത്തത് റിയാദിൽനിന്ന് മസ്ക്കറ്റ് വഴി കരിപ്പൂരിലെത്തിയ കോഴിക്കോട് ഓമശ്ശേരി സ്വദേശി പി

ബി ഐ എ ടി എമ്മിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മോഷണശ്രമം

മോഷ്ടാക്കൾ വന്നതെന്ന് സംശയിക്കുന്ന കാർ സമീപത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദ മായി നടപ്പാക്കിയതിന് സംസ്ഥാന പൊതുജനാരോഗൃ അഡീഷണൽ ഡയറക്ടർ ഡോ

മീനാക്ഷിയ്ക്ക് കേന്ദ്ര പുരസ്കാരം ലഭിച്ചു കൊതുക് നിയന്ത്രണത്തിന് നേതൃത്വം നൽകിയതിനാണ് പുരസ്കാരം കൊച്ചിയിൽ ആരോഗ്യസഹമന്ത്രി അശ്വനികുമാർ ചൌബെ അവാർഡ് സമ്മാനിച്ചു വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ചതിനെത്തുടർന്ന് നിർത്തിവെച്ചിരുന്ന സുൽത്താൻ ബത്തേരി സർവ്വജന സ്കൂളിലെ യു പി വിഭാഗം ക്ലാസ്സുകൾ ഇന്ന് ആരംഭി ക്കും

കോട്ടയം കുമാരനെല്ലൂർ തൃക്കാർത്തിക ഉത്സവത്തിന് ഇന്ന് കൊടിയേറും പത്താം തീയതിയാണ് കാർത്തിക വിളക്ക്